ചിലർ സമൂഹ ത്തിൽ നിയമത്തെ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാ ണെന്നും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം ഡൽഹിയിലെ മോത്തിബാഗിൽ പറഞ്ഞു

ജെ പിയുടെ പൌരത്വ ഭേദഗതി നിയമ ബോധവത്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര മന്ത്രി

ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നവർ പരാജയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തടയാനും വ്യാജ റീഫണ്ട് ക്ലെയിമുകളിലും നികുതി ഒഴിവാക്കലിലും വേഗത്തിൽ നട പടിയെടുക്കാനും കേന്ദ്ര സംസ്ഥാന നികുതി ഉദ്യോഗസ്ഥരുടെ സമിതി രൂപീ കരിക്കാൻ തീരുമാനമായി ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന ജി എസ് ടി ചീഫ് കമ്മീഷണർമാരുടെയും സംസ്ഥാന കമ്മീഷണർമാരുടെയും യോഗ ത്തിലാണ് ഈ തീരുമാനമെടുത്തത്

ടി ക്രമക്കേടുകൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ ഒരാഴ്ചക്കകം കമ്മിറ്റി തയ്യാറാക്കും രാജ്യ വ്യാപകമായി ഈമാസം അവസാനത്തോടെ പദ്ധതി നടപ്പാക്കും വിവിധ നികുതി വകുപ്പുകൾ തമ്മിൽ ഡാറ്റ പരസ്പരം കൈമാറുന്നതിന് ധാരണാപ ത്രവും ഒപ്പുവെയ്ക്കും മൂന്നുമാസത്തിലൊരിക്കൽ ഡാറ്റകൾ കൈമാറാനാണ് തീരുമാനം നേരത്തെ ഇത് വർഷത്തിലൊരിക്കലായിരുന്നു ദർവ്വട്ടെഴ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ലക്ഷദ്വീപ് സന്ദർശനം തുടരുന്നു ഇന്നലെ വൈകീട്ട് ബംഗാരം ദ്വീപിലെത്തിയ രാഷ്ട്രപതിയും പത്നിയും ഇന്നും ദ്വീപിൽ തുടരും ലക്ഷദ്വീപിന്റെ കലാ സാംസ്കാരിക രൂപങ്ങൾ അദ്ദേഹ ത്തിനായി പ്രദർശിപ്പിക്കും ഇന്നലെ കവരത്തിയിൽ ലക്ഷദ്വീപിലെ ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് രാംനാഥ് കോവിന്ദ് തറക്കല്ലിട്ടു മൂന്നു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി നാളെ രാഷ്ട്രപതി കൊച്ചിയിലേക്ക് യാത്രതിരിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട റവന്യൂ വരുമാനത്തിൽ നേരിടുന്ന കുറവുകൾ പദ്ധതികളെ ബാധിക്കാ ത്ത രീതിയിലാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി എ കെ ബാ ലൻ പറഞ്ഞു ലൈഫ് മിഷൻ പാലക്കാട് ജില്ലാതല കുടുംബസംഗമവും പ ദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനവും കോട്ടമൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി ഗവൺമെന്റ് പ്രകടനപത്രികയിൽ മുന്നോട്ട് വെച്ച ഭൂരിഭാ ഗം വാഗ്ദാനങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റിപ്പബ്ലിക് ദിന ത്തിൽ മുഖ്യമന്ത്രി ലൈഫ് മിഷൻ പദ്ധതി മുഖേന സംസ്ഥാനത്ത് പൂർത്തീ കരിച്ച രണ്ടു ലക്ഷം വീടുകളുടെ പ്രഖ്യാപനം നടത്തുന്നത് ഇതിന് തെളിവാ ണെന്നും മന്ത്രി പറഞ്ഞു രദ്ദേഷ്ടങ സ്മാർട്ട് അങ്കണവാടി പദ്ധതി സംസ്ഥാനത്ത് വ്യാപിപ്പിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി എ

തിരുവനന്തപുരത്ത് ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടിയുടെ നിർമ്മാണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതായി മന്ത്രി പറഞ്ഞു നീന്തൽക്കുളം പൂന്തോട്ടം കളിസ്ഥലം തുടങ്ങി കുട്ടികളുടെ ശാരീരിക മാനസിക സാമൂഹിക വളർച്ചയ്ക്കാവശ്യമായ സൌകര്യങ്ങളാണ് സ്മാർട്ട് അങ്കണവാടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദർവ്വെടു വൈദ്യുതി സംബന്ധമായ പരാതികൾ പരിഹരിക്കാൻ ജില്ലാതല അദാ ലത്തുകൾ നടത്തുമെന്ന് മന്ത്രി എം എം മണി എം

എമാർക്ക് അയച്ച കത്തിൽ അറിയിച്ചു

കേന്ദ്ര സംസ്ഥാന കാർഷിക വകുപ്പുകൾ സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചത് അടുത്തവർഷത്തെ വൈഗ കാർഷികമേളയും തൃശൂരിൽ സംഘടിപ്പിക്കാൻ തീരുമാനമായി

കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും വൈഗ സ്ഥിരം റിസോഴ്സ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി

എം എസ് ഒഴികെ പത്ത് ദേശീയ തൊഴി ലാളി യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ സംഘ ടനകളും ബാങ്ക് ഇൻഷൂറൻസ് ബി

എൽ സംഘടനകളും പണിമു ടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്

കടകൾക്ക് സംരക്ഷണം നൽകണമെന്ന് പൊലീസിനോട് ആവശ്യ പ്പെട്ടിട്ടുണ്ട് ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളികളും പണിമുടക്കും

ആർ ടി സി പുലർച്ചെ വരെ ദീർഘദൂര സർവീസുകൾ നടത്തിയെന്നാണ് റിപ്പോർട്ട് പണിമുടക്കിന്റെ പ്രചരണാർത്ഥം കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആന്റ് വർക്കേഴ്സ് ഇന്നലെ വൈകീട്ട് സംസ്ഥാന വ്യാപകമായി പന്തംകൊളുത്തി പ്രകടനം നടത്തി

ഇതോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഒരു വിജയ ത്തോടെ ഇന്ത്യ മുന്നിലെത്തി

മൂന്നാം മത്സരം മറ്റന്നാൾ പൂനെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും ഹൈദരാബാദിലെ ആദ്യമത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു

എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ഗോവ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും വൈകീട്ട് ഏഴരക്ക് ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം

ദർവ്വെട്ടറ ദക്ഷിണേന്തൃയിലെ ഏറ്റവും വലിയ കൃാമ്പസ് സാംസ്കാരിക മേളയായ രാഗം ഫെസ്റ്റ് കോഴിക്കോട് എൻ ഐ

പതിനേഴ് കലാ കായിക ഇനങ്ങൾ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബീറ്റാ ബോക്സിം ഗ് ഡ്രോൺ സർവെയിലൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ സാങ്കേതിക ഉച്ച കോടിയായ അദ്ധയ ഇതിന്റെ ഭാഗമായി നടക്കും

എച്ച് പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി

എസ് എസ് പ്രാന്തീയ കാ രൃകാരി അംഗം വത്സൻ തില്ലങ്കേരി മുൻ ഡി ജി പി ടി പി സെൻകുമാർ എ ന്നിവർ സംസാരിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട പൌരത്വ നിയമ ഭേദഗതിയെ എതിർക്കുന്നവരെ അടിച്ചൊതുക്കുന്ന നയ മാണ് സംസ്ഥാന ഗവൺമെന്റും നടപ്പാക്കുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലത്ത് കുറ്റപ്പെടുത്തി ചിതറയിൽ നിയമത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തിനെതിരെ പൊലീസ് മർദ്ദനം അഴിച്ചുവിട്ടതായി അദ്ദേഹം പറ ഞ്ഞു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു

കൺസ്യൂമർ പ്രൊ ട്ടക്ഷൻ ഫോഴ്സ് രൂപീകരിക്കണമെന്നും സംഘടന ആവശ്യമുന്നയിച്ചു രദേശ്ശേ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അധ്യാപകന് പതിനഞ്ച് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ചെർപ്പുളശ്ശേരി കൈപ്പുറം സ്വദേശി ശശികുമാറിനെയാണ് പാലക്കാട് പോക് സോ കോടതി ശിക്ഷിച്ചത്

രണ്ടാം ക്സാസ് വിദ്യാർത്ഥിനിയെ മിഠായി നൽകാമെന്ന് പറഞ്ഞ് സ്കൂ ളിന് പുറകിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ് രദ്ദേഷ്ടങ കോഴിക്കോട്ടെയും എറണാകുളത്തെയും റീജ്യണൽ കെമിക്കൽ എക്സാ മിനേഴ്സ് ലാബുകൾക്ക് ഫോറൻസിക് ലാബുകൾക്ക് നൽകുന്ന രാജ്യാന്തര അംഗീകാരമായ എൻ

ഇതോടെ സംസ്ഥാ നത്തെ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബുകൾക്കെല്ലാം അക്രഡിറ്റേഷ നായി

ഇന്നലെ പുലർച്ചെ അഞ്ചര മുതൽ എട്ടുമണിവരെയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ രുട്ട്ട്ട്ട്ട്ട്ട്ട ട സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിലവർദ്ധനാ തീരുമാനത്തിനെതിരെ ശക്ത മായ സമരം ആരംഭിക്കാൻ കോഴിക്കോട്ട് ചേർന്ന ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആന്റ് സെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗം തീരു മാനിച്ചു മറ്റന്നാൾ സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാരും സെക്ര ട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരം നടത്തും രുട്ട്ട്ട്ട്ട്ട്ട്ട കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ സ്വകാര്യ ഹജ്ജ് ഉംറ സംഘങ്ങൾക്ക് അനു ബന്ധ കാര്യങ്ങൾക്ക് സൌജന്യ സൌകര്യമൊരുക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച രണ്ടാമത് ഹജ്ജ് ഉംറ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം